കോവിഡ് പോരാട്ടത്തിൽ രാജ്യം കൈവരിച്ച നേട്ടം ലോകത്തിന് മാതൃകയാക്കാവുന്നതാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആരോഗ്യപ്രവർത്തകരോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്നും രാഷ്ട്രപതി

ജമ്മു കശ്മീർ പൊലിസിലെ അബ്ദുൽ റഷീദ് ഖലാസിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര

തിരുവനന്തപുരം നഗരസഭയിൽ ലോക്ക്ഡൌൺ പിൻവലിച്ചു

തോമസ് ഐസക്

പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപ സമയത്തിനകം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

ലാഹോറി ഗേറ്റിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങും രാജ്യരക്ഷാ സെക്രട്ടറി അജയ്കുമാറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും

തുടർന്ന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

പൂർണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ രേര കോവിഡ് പോരാട്ടത്തിൽ രാജ്യം കൈവരിച്ച നേട്ടം ലോകത്തിന് മാതൃകയാക്കാവുന്നതാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു കഠിന യത്നത്തിലൂടെ മഹാമാരിയുടെ വ്യാപ്തി കുറയ്ക്കാനും ധാരാളം ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞെന്നും രാഷ്ട്രപതി പറഞ്ഞു

കോവിഡിനെതിരായ പോരാട്ടത്തിൽ മുൻ നിരയിൽ അക്ഷീണം പ്രയത്നിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ആരോഗ്യപ്രവർത്തകർ എന്നിവരോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുമ മഹാമാരിക്കെതിരായ പോരാട്ടത്തിനിടെ ആരോഗ്യ പ്രവർത്തകരിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അവർ നമ്മുടെ ദേശീയ നായകരാണെന്നും രാഷ്ട്രപതി പറഞ്ഞു കടുത്ത വെല്ലുവിളി കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് കൃത്യ സമയത്ത് തന്നെ പ്രതികരിച്ചു

ലോകം മുഴുവൻ മാരകമായ വൈറസിനെതിരായ പോരാട്ടത്തിലായതിനാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നിയന്ത്രിതമായിരിക്കുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

പ്രധാനമന്ത്രി ഗരീബ് കല്യാണ യോജന വഴി കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്

ആധുനിക ഇന്ത്യയുടെ അടിത്തറ പാകിയത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധാർമ്മികതയാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വഴി വിളക്കായി മഹാത്മാഗാന്ധിയെ ലഭിച്ചതിൽ നാം ഭാഗ്യവാൻമാരാണെന്നും രാഷ്ട്രപതി പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയവയും രാഷ്ട്രപതി പരാമർശിച്ചു

ഭീകരരുമായി ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ജമ്മുകശ്മീർ പൊലീസിലെ ഹെഡ്കോൺസ്റ്റബിൾ അബ്ദുൾ റഷീദ് കലാസിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകി ഡൽഹി പൊലീസ് പ്രത്യേക സെല്ലിലെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുൽ റഷീദ് കലാസ് മലയാളിയായ വ്യോമസേന വിംഗ് കമാന്റർ വൈശാഖ് നായർ ഉൾപ്പെടെ ഒമ്പതു പേർക്ക് ശൌര്യചക്ര ലഭിച്ചു

രുമ മുഖ്യമന്ത്രിയും ഏഴ് മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിൽ പോയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ അഭിവാദ്യം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരിക്കും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കുക

തോമസ് ഐസക് ആലപ്പുഴയിലും പി തിലോത്തമൻ കോട്ടയത്തും എം എം മണി ഇടുക്കിയിലും കെ കൃഷ്ണൻകുട്ടി പാലക്കാട്ടും ഇ

എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ജില്ലാ കലക്ടർമാരും മലപ്പുറത്ത് ഡെപ്യൂട്ടി കലക്ടറും കോഴിക്കോട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാണ് ദേശീയ പതാക ഉയർത്തുക രുദ സംസ്ഥാനത്തും പൂർണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായാണ് സ്വാതന്ത്ര്യദിനാഘോഷം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ കോവിഡ് രോഗമുക്തി നേടിയവർ എന്നിവരെ ചടങ്ങുകളിൽ ആദരിക്കും രുമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വാതന്ത്ര്യദിന ആശംസ നേർന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യരാജ്യത്തിലെ പൌരരെന്നനിലയിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉദാത്തമാതൃക കാട്ടേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഗവർണർ പറഞ്ഞു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോട് കടപ്പാട് ഉന്നതമായ പൌരബോധത്തിലൂടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചു നിറവേറ്റാമെന്നും ഗവർണർ പറഞ്ഞു രുമ പുതിയ ഒരിന്ത്യ കെട്ടിപ്പടുക്കാൻ പരിശ്രമത്തിൽ നമുക്കൊന്നായി കൈകോർക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബഹുസ്വരതയുടെ വർണ്ണരാജിയായി നമ്മുടെ രാജ്യം തെളിഞ്ഞുയരുന്ന നാളിലേക്ക് നമുക്ക് നീങ്ങാമെന്നും സർവ്വ മനുഷ്യരും തുല്യരായിത്തീരുന്ന ആ സുദിനത്തിലേക്ക് നമുക്ക് മുന്നേറാമെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു

രുമ മലപ്പുറം ജില്ലാകലക്ടർക്കും പൊലീസ് സൂപ്രണ്ടിനും കൊവിഡ് സ്ഥിരീകരിച്ചതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് മന്ത്രിമാരും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമാണ് സ്വയം നിരീക്ഷണത്തിൽ പോയത്

സി മൊയ്തീൻ വി എസ് സുനിൽകുമാർ ഇ പി ജയരാജൻ എന്നിവരുടെ പരിശോധനാ ഫലം പിന്നീട് നെഗറ്റീവായെങ്കിലും ഇവരോടെല്ലാം നിരീക്ഷണത്തിൽ തുടരാൻ നിർദേശിച്ചിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

നവജ്യോത് ഖോസ അറിയിച്ചു

എന്നാൽ നിയന്ത്രിത മേഖലകളിൽ ഇളവുണ്ടാകില്ല രാത്രി ഒൻപതുവരെ ഹോട്ടലുകളിൽ ഹോം ഡെലിവറി അനുവദിക്കും രുമ ഉറവിടമറിയാത്ത കോവിഡു കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ണൂർ പുതിയ തെരുവിൽ ഇന്നു മുതൽ ലോക്ക് ഡൌൺ ഏർപ്പെടുത്തിയതായി വളപട്ടണം പോലീസ് അറിയിച്ചു രുമ സംസ്ഥാനത്തെ ആദ്യ കോവിഡ് സെക്കന്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എറണാകുളം കറുകുറ്റിയിൽ പ്രവർത്തന സജ്ജമായി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

അദീല അബ്ദുള്ള ചർച്ച നടത്തി

രുമ സംസ്ഥാനത്ത് സ്വർണനീക്കത്തിന് ബിൽ ഇ വേ നടപ്പാക്കുമെന്ന് മന്ത്രി ഡോ ടി

എസ്

രുമ കൊപ്രയുടെയും പച്ചത്തേങ്ങയുടെയും താങ്ങുവില വർധിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് മന്ത്രി വി

കേരളത്തിൽ കർഷകരുടെ ഉൽപാദനച്ചെലവ് കണക്കാക്കിയാൽ നിലവിലെ താങ്ങുവില അപര്യാപ്തമാണെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്ത് ഒരു താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് പകരം ഓരോ സംസ്ഥാനങ്ങളുടെയും ഉൽപാദന ചെലവ് കണക്കാക്കി സംസ്ഥാനാടിസ്ഥാനത്തിൽ താങ്ങുവില വർധിപ്പിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ദേശ വനം വകുപ്പ് നടപ്പാക്കുന്ന തണൽ വീഥി പദ്ധതി മലയോര ഹൈവേയ്ക്ക് തണലും അഴകും നൽകുമെന്ന് മന്ത്രി കെ

മലയോര ഹൈവേയുടെ വശങ്ങൾ ഹരിതാഭമാക്കുന്നതിന് സാമൂഹിക വനവത്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം അഞ്ചലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി രദര പീരുമേട് തേയിലത്തോട്ടങ്ങളിലെ ശമ്പളക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു